ത ലോകായുക്തയുടെ കണ്ടെത്തൽ ഗൌരവകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ

വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് കൊവിഡ് രൂക്ഷമാകുന്ന വ്യാപനം സാഹചര്യത്തിൽ ക്രഷിംഗ് ദി കർവ് എന്ന പേരിൽ മാസ് വാക്സിനേഷൻ പദ്ധതി നടപ്പാക്കും പദ്ധതിക്കാവശ്യമായ വാക്സിൻ നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരത്ത് പറഞ്ഞു

ഇവരെ സംരക്ഷിക്കാൻ വാക്സിനേഷൻ ദ്രുതഗതിയിലാക്കേണ്ട തുണ്ടെന്ന് മന്ത്രി പറഞ്ഞു

ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് വാക്സിൻ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു

ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വൻ വർധന

രും കോഴിക്കോട് ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുക്കിയ നിയന്ത്രണ ഉത്തരവ് നിലവിൽ വന്നു പൊതുസ്ഥലങ്ങളിലും വാഹനങ്ങളിലും മാസ്ക് ഉപയോഗിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും

ജില്ലയിൽ എല്ലാദിവസവും പതിനായിരം പേരെ പരിശോധനക്ക് വിധേയമാക്കും

വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരുടെ കൊവിഡ് പരിശോധന ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് രും രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തുതല കമ്മിറ്റികൾ അഞ്ചു പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് താഴെതട്ടിൽ നേതൃത്വം നൽകണമെന്ന് കൊല്ലം ജില്ലാ കലക്ടർ ബി

തിരഞ്ഞെടുപ്പിനുശേഷം കോവിഡ് വ്യാപനം രൂക്ഷമാകുമെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് വിവിധ പാർട്ടികളുടെ ബൂത്തുതല കമ്മിറ്റികളെ ഉപയോഗിച്ച് വീടുകൾ തോറും ബോധവത്കരണം ശക്തമാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും ലക്ഷ്യമിടുന്നത് രും പ്രതിരോധത്തിനും കോവിഡാനന്തര കോവിഡ് ചികിത്സയ്ക്കുമായി ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ഇടുക്കി ജില്ലയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു ആയുർ രക്ഷ ക്സിനിക്കുകളിലൂടെ അമൃതം ഭഭഷജം പുനർജനി തുടങ്ങിയ പേരുകളിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്

ടി ജലീൽ കുറ്റക്കാരനെന്ന് വിധിച്ച് ലോകായുക്ത മന്ത്രി പദവിയിൽ ഇരുന്ന് ജലീൽ സ്വജനപക്ഷപാതം നടത്തിയെന്നും മന്ത്രി സ്ഥാനത്ത് തുടരാൻ യോഗ്യത ഇല്ലാത്ത ജലീലിനെതിരെ മുഖ്യമന്ത്രി യുക്തമായ നടപടി സ്വീകരിക്കണമെന്നും വിധിയിൽ നിർദേശിച്ചു ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപറേഷനിൽ ജനറൽ മാനേജറായി ബന്ധുവായ കെ ടി അദീപിനെ നിയമിച്ചതാണ് വിവാദത്തിനിടയാക്കിയത്

ഹൈക്കോടതിയും ഗവർണറും സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസുമായ പി സദാശിവവും തള്ളിയ കേസിലാണ് ലോകായുക്ത ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു പൂർണമായ വിധിപകർപ്പ് കിട്ടിയ ശേഷം നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർനടപടികൾ സ്വീകരിക്കുമെ ന്നും അദ്ദേഹം ഫെയ്സ് ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു ര ധാർമ്മികത അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ലോകായുക്ത വിധിയുടെ വെളിച്ചത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ രാജി മുഖ്യമന്ത്രി മന്ത്രി എഴുതി വാങ്ങുകയോ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ജലീലിന് മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്ന ലോകായുക്തയുടെ വിധിയിൽ മുഖ്യമന്ത്രി യുക്തമായ തീരുമാനമെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ലോകായുക്തയുടെ കണ്ടെത്തൽ ഗൌരവകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വ്യക്തമാക്കി രംഭ കണ്ണൂർ പാനൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂർ കൊലക്കേസിൽപ്പെട്ടയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി

ഐ എം

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും

എഫിന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ പാനൂർ മേഖലയിൽ സമാധാന സന്ദേശയാത്ര നടത്തും കടവത്തൂരിൽനിന്ന് മുക്കിൽപീടിക തുടങ്ങി വഴി പെരിങ്ങത്തൂരിൽ സമാപിക്കുന്ന തരത്തിലാണ് യാത്ര നടത്തുക രും പശ്ചിമബംഗാളിൽ നാലാംഘട്ട വോട്ടെടുപ്പ് ഇന്ന്

രുര ദേശീയ നിയമ സേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഇന്ന് ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിക്കും നിലവിൽ കോടതികളുടെ പരിഗണനയിലിരിക്കുന്നതും ഒത്തുതീർപ്പാക്കാത്തതുമായ സിവിൽ ക്രിമിനൽ കുടുംബതർക്ക കേസുകൾ ബാങ്കുകൾ സമർപ്പിച്ച വായ്പ കുടിശ്ശിക സംബന്ധിച്ച കേസുകൾ നിയമപ്രകാരം ഒത്തുതീർപ്പാക്കാൻ കഴിയുന്ന തർക്കങ്ങൾ തുടങ്ങിയവയാണ് ലോക് അദാലത്തിൽ പരിഗണിക്കുക കൊല്ലം ജില്ലയിൽ ഇരുപത്തിയഞ്ചോളം ബൂത്തുകളിലായി അയ്യായിരത്തിലധികം കേസുകൾ പരിഗണിക്കും

ചെന്നൈയിൽ ചിദംബരം സ്റ്റേഡിയത്തിൽ അവസാന പന്തുവരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ മുൻചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ രണ്ട് വിക്കറ്റിനാണ് ബംഗളുരു തോൽപിച്ചത്

ഇന്നലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ശ്രീനീവാസനാണ് മരിച്ചത്

രും കഴക്കൂട്ടം പള്ളിപ്പുറം ടെക്നോസിറ്റിക്ക് സമീപം ഇന്നലെ രാത്രി വൻ സ്വർണ കവർച്ച

സ്വർണവ്യാപാരി മഹാരാഷ്ട്ര സ്വദേശി സമ്പത്തിനെയും ഡ്രൈവർ അരുണിനെയും കാറിന്റെ ഗ്ലാസുകൾ തകർത്ത് മുളകുപൊടി എറിഞ്ഞ് വെട്ടി പരുക്കേൽപ്പിച്ച ശേഷമായിരുന്നു കവർച്ച ദേഴ വട്ടിയൂർക്കാവ് നിയമസഭ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർഥി വീണ എസ് നായരുടെ പോസ്റ്ററുകൾ ആക്രിക്കടയിൽ തൂക്കിവിറ്റ സംഭവത്തിൽ കോൺഗ്രസ് മണ്ഡലം ട്രഷററെ സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിലാണ് മണ്ഡലം ട്രഷറർ പി ബാലുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് വോട്ടിംഗ് ദിനത്തിൽ ബൂത്ത് അലങ്കരിക്കാനായി നൽകിയ പോസ്റ്ററുകൾ ആക്രിക്കടയിൽ വിറ്റ് കാശ് വാങ്ങുകയായിരുന്നു രും തൃശൂർ ജില്ലയിൽ ഇനിയും കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള നെൽപ്പാടങ്ങളിൽ വേനൽ മഴയ്ക്ക് മുൻപായി കൊയ്ത്തും സംഭരണവും ഊർജ്ജിതമാക്കാൻ കലക്ടർ എസ് ഷാനവാസിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനിച്ചു പാടശേഖരങ്ങൾക്ക് എത്രയും വേഗം മില്ല് അലോട്ട് ചെയ്ത് നൽകുന്നതിന് ജില്ലാ സപ്ലൈ ഓഫീസറെ യോഗം ചുമതലപ്പെടുത്തി

അഡീഷണൽ ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്തു ചേർന്ന തൊഴിലുടമ തൊഴിലാളി പ്രതിനിധിക ളുടെ യോഗത്തിലാണ് അന്തിമ ബോണസ് നിശ്ചയിച്ചത്

രുര വേനൽ മഴയിൽ വയനാട്ടിൽ വ്യാപക നാശനഷ്ടം പൂതാടി പുളിയംമ്പറ്റയിൽ രണ്ട് വീടുകൾ മരം വീണ് തകർന്നു കേണിച്ചിറ പോലീസ് സ്റ്റേഷന്റെ സമീപം മിന്നലിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് വൈദ്യുതി ബന്ധം തടസ്സപെട്ടു

റെയിൽവെ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും യാത്രക്കാരുടെ ബാഹുല്യമില്ലെന്നും ഇതു സംബന്ധിച്ച വാർത്തകൾ നിഷേധിച്ച് അദ്ദേഹം പറഞ്ഞു